മുഖ്യമന്ത്രിയുമായ ഷീലാ ദീക്ഷിത്തിന് അന്ത്യാജ്ഞലി

എണ്ണക്കപ്പൽ അടിയന്തിരമായി വിട്ടയയ്ക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി

തുടരുന്നു ഏഴ് ജില്ലകളിലായി പത്ത് ദുരിതാശ്വാസ ക്യാമ്പു കൾ തുറന്നു

ഇന്റോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ പി

ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയാണ് ഷീലാ ദീക്ഷിത് വിടവാങ്ങിയത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷട്രപതി എം വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ നേതാക്കൾ ദീക്ഷിതിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ദേശീയ തലസ്ഥാനത്തെ ആധുനിക വൽകരിക്കുന്നതിന് ഷീലാ ദീക്ഷിത് വഹിച്ച പങ്ക് അവിസ്മരണീയമാണെന്ന് രാഷട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മികച്ച ഭരണാധികാരിയാണ് നഷ്ടമായതെന്ന് ഉപരാഷ്ട്രപതി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഡൽഹിയിലെ വികസനത്തിന് ഷീലാ ദീക്ഷിത് നൽകിയ സേവനങ്ങൾ പ്രധാനമന്ത്രിയും അനുസ്മരിച്ചു ഡൽഹിയിലെ വസതിയിൽ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്തരിച്ച നേതാവിന് ആദരാജ്ഞലി അർപ്പിച്ചു

ജെ പി അധ്യക്ഷനും ആഭ്യന്തര മന്ത്രിയുമായ അമിത് ഷാ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് തുടങ്ങിയവരും അനുശോചനം അറിയിച്ചു അന്തരിച്ച നേതാവിനോടുള്ള ആദരസൂചകമായി ഡൽഹിയിൽ രണ്ടു ദിവസത്തെ ദുഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് സംസ്കാര ചടങ്ങ്

പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് ആകെ ഒന്നര ലക്ഷം ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര മന്ത്രി ഡോ ഹർഷ വർദ്ധൻ ഹൈദ്രാബാദിൽ പറഞ്ഞു സാർവ്വത്രിക ആരോഗ്യം നടപ്പാക്കുന്നതിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി മാതൃകയാണെന്ന് സി

ഐ ആർ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞരേയും ഉദ്യോഗസ്ഥരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഡോ

പുതിയ ദേശീയ മെഡിക്കൽ കൌൺസിൽ ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ഡോ

സാമൂഹിക സാമ്പത്തിക വികസനത്തിന് റോഡുകളും പാലങ്ങളും വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു

നാഗ്പൂരിൽ ഇന്ത്യൻ ബാങ്കിന്റെ സോണൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

മഹാരാഷ്ട്രയിലെ വിദർഭയിൽ ആരംഭിച്ച സൌരോർജ്ജ ചർക്ക കൂട്ടായ്മയിലൂടെ കയറ്റുമതി ഗുണനിലവാര മുള്ള തുണിത്തരങ്ങൾ ഉദ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ശ്രീ

ഇന്നലെ ഡൽഹിയിൽ നടന്ന സിവിൽ ഏവി യേഷൻ കാർഗോ എന്നിവയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമ്മേ ളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എ

എ കസ്റ്റഡിയിൽ വിട്ടിരുന്നു

ഇറാനുമായുള്ള സംഘർഷം ലഘൂകരിക്കാനായി ബ്രിട്ടൺ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

കപ്പൽ പിടിച്ചെടുത്തത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ബ്രിട്ടീഷ് കപ്പലുകളുടെ സുരക്ഷയ്ക്കും നടപടി ഭീഷണി ഉയർത്തുന്നതായി ഹണ്ട് പറഞ്ഞു

എന്നാൽ സുരക്ഷാ കാരണങ്ങൾ എന്താണെന്ന വ്യക്തമാക്കിയിട്ടില്ല ലണ്ടനിലെ ഹീത്രു പ്രീമാനത്താവളത്തിൽ നിന്ന് കെയ്റോയിലേക്ക് പുറപ്പെടാനെത്തിയും യ്മാത്രക്കാരോട് സർവ്വീസ് റദ്ദാക്കിയതായി അറിയിക്കുകയായിരുന്നു

യുദ്ധ ത്തിൽ വീരചരമം വരിച്ച രക്ത സാക്ഷികളുടെ കൂടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും

കൊല്ലം നീണ്ടകരയിൽ നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനായില്ല കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

ഈ മാസം രണ്ട് മുതൽ യൂറോപ്പിൽ നടക്കുന്ന അത്ലറ്റിക് മീറ്റിൽ ഹിമ ഇതു വരെ അഞ്ച് സ്വർണം നേടി

ജക്കാർത്തയിൽ ഇന്നലെ നടന്ന സെമിയിൽ ലോക മൂന്നാം നമ്പർ താരമായ ചൈനയുടെ ചെൻ യുഫെയെ അഞ്ചാം സീഡായ സിന്ധു നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് പരാജയപ്പെടുത്തിയത്

ജപ്പാന്റെ നാലാം സീഡായ അകാനേ യമഗുച്ചിയാണ് ഫൈനലിൽ സിന്ധുവിന്റെ എതിരാളി

എസ് എൽ